ത ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ ആയിരത്തോളം ഇന്ത്യക്കാർ ഇന്ന് നാട്ടിലെത്തും നാലുവിമാനങ്ങൾ കേരളത്തിൽ

എസ് എൽ

വാർത്തകൾ വിശദമായി ഒം ഫാൻ ചുഴലിക്കാറ്റിന്റെ പാതയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ അടിയന്തര നടപടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദേശം നൽകി അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും ഡൽഹിയിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ദേശീയ ദുരന്ത നിവാരണ സേന തയാറാക്കിയ ഒഴിപ്പിക്കൽ രൂപരേഖയും തയാറെടുപ്പുകളും പ്രധാനമന്ത്രി അവലോകനം ചെയ്തു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാസഹായങ്ങളും അദ്ദേഹം ഉറപ്പു നൽകി അതി തീവ്ര ചുഴലിക്കാറ്റായി മാറുന്ന ഒം ഫാൻ നാളെ പശ്ചിമബംഗാൾ ഒഡീഷ തീരങ്ങളിൽ ആഞ്ഞടിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ

ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തെ തുടർന്ന് തീര ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്

ദേശ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ ആയിരത്തോളം ഇന്ത്യക്കാരെ ഇന്ന് ആറു വിമാനങ്ങളിലായി രാജ്യത്ത് എത്തിക്കും

റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്കും ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കും

കുവൈറ്റിൽ നിന്നും ദോഹയിൽ നിന്നും രണ്ട് വിമാനങ്ങൾ കണ്ണൂരിലുമെത്തും

ഡൽഹിയിലേക്കും ഹൈദരാബാദിലേക്കുമാണ് മറ്റു രണ്ടു വിമാനങ്ങൾ

ഇവരിൽ രണ്ടു പേർ തമിഴ്നാട് സ്വദേശികളാണ്

കൊല്ലം ജില്ലയിൽ എട്ടു പേർക്കും തൃശൂരിൽ നാലു പേർക്കും തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ മൂന്നു പേർക്ക് വീതവും രോഗം ബാധിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കോഴിക്കോട് കാസർകോട് ജില്ലകളിൽ രണ്ടു പേർക്ക് വീതവും എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

കണ്ണൂർ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകയ്ക്ക് സമ്പർക്കം മൂലമാണ് കോവിഡ് ഉണ്ടായത്

ഇന്നലെ പുതുതായി ആറു പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടായി വേർതിരിച്ചു രുമ കൊല്ലത്ത് ആറു പേർക്ക് കൂടി ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം എട്ടായി അഞ്ചു പേർ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളജിലും മൂന്നു പേർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും ചികിത്സയിലാണ് കോഴിക്കോട്ട് രോഗം സ്ഥിരീകരിച്ച രണ്ടു പേരും മെഡിക്കൽ കോളജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് പാലക്കാട് ജില്ലയിൽ മുംബൈയിൽ നിന്നും വന്ന കൊപ്പം സ്വദേശിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്

നേരത്തെ തിരുനെല്ലി എടവക പഞ്ചായത്തുകളിലും മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വെള്ളമുണ്ടയെ കണ്ടെയിൻമെന്റ് സോണായി നിശ്ചയിച്ചത് കോവിഡ് കെയർ സെന്ററുകളിൽ കഴിയുന്ന പ്രവാസികൾ ആരോഗ്യ വകുപ്പിന്റെ നിർദേശങ്ങൾ ലംഘിച്ചാൽ പാസ്പോർട്ട് പിടിച്ചെടുക്കുമെന്ന് ജില്ലാ പൊലീസ് മേധാവി അറിയിച്ചു ഹോം ക്വാറന്റൈൻ ലംഘിച്ച മൂന്നു പേരെ പൊലീസ് പിടികൂടി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്

ദേദ അതിഥി തൊഴിലാളികളുമായി പശ്ചിമ ബംഗാളിലേക്ക് വൈകീട്ട് നാലിന് തിരൂരിൽ നിന്ന് പ്രത്യേക ട്രെയിൻ യാത്രതിരിക്കും

ആരോഗ്യ ജാഗ്രത ഉറപ്പാക്കിയ ശേഷം ഇവരെ കെ

സി ബസുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിക്കും

മേഖലയിൽ മാസ്ക് ഗ്രാമീണ ഉപയോഗിക്കാത്തവർക്കെതിരെ നിയമനടപടി എടുക്കുന്നതിനൊപ്പം ക്യാംപയിന്റെ ഭാഗമായി സൌജന്യമായി മാസ്കുകൾ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

രുമ കേന്ദ്ര ഗവൺമെന്റിന്റെ കോവിഡ് സാമ്പത്തിക പാക്കേജിൽ അഞ്ചു ശതമാനത്തിൽ താഴെ തുക മാത്രമേ സാധാരണക്കാരുടെ കൈകളിൽ പണമായി എത്തൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി

രുമ ശേഷിക്കുന്ന എസ് എസ് എൽ

ഇതിന്റെ പരീക്ഷാ ടൈംടേബിൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു വിദ്യാർഥികൾക്കാവശ്യമായ ഗതാഗത സൌകര്യം സ്കൂൾ ബസുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദരര കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയിലെ മികച്ച റിപ്പോർട്ടിങ്ങിന് ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ രണ്ടാം തവണയും ദേശീയ പുരസ്കാരം നേടി ഇടുക്കി വനമേഖലയിലെ ആദിവാസികൾ മാസ്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് ദേശീയ അംഗീകാരം ലഭിച്ചത്

തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് സെക്രട്ടറിയേറ്റ് ലയം ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ കെ ശൈലജയും വി എസ് സുനിൽകുമാറും പങ്കെടുക്കും